രാജ്യത്ത് മാതൃക പെരുമാറ്റചട്ടം നിലവിൽ വന്നു

എം

ക്ട്രെയും തമ്മിൽ തെരഞ്ഞെടുപ്പ് സഖ്യം നിലവിൽ വന്നു

വൈകിട്ട് തുറക്കും

പരമ്പരയിലെ അവസാന മത്സരം മറ്റന്നാൾ ഡൽഹിയിൽ

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ വോയിസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വി വി

ജ്മു ക്കശ്മീരിലും പശ്ചിമ ബംഗാളിലും അഞ്ച് ഘട്ടമായും ബ്രീഹാറിലും യു

വോട്ടിംഗ് യന്ത്രങ്ങൾ ജി

ആന്ധ്ര പ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും ജമ്മു കശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തില്ലെന്നും മുഖൃ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ അറിയിച്ചു

കേരളത്തിൽ ഏപ്രിൽ നാലിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേ അവസാന തീയതി

തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് മാതൃകാ പെരുമാറ്റചട്ടം നിലവിൽ വന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വോട്ട് നൽകിയ സ്ഥാനാർത്ഥിക്കു തന്നെയാണോ അത് ലഭിച്ചിരിക്കുന്നതെന്ന് സ്ലിപ്പിൽ ക ് ബോധ്യപ്പെടാം വോട്ട് ചെയ്തയുടനെ ഏഴ് സെക്കന്റ് സമയം സ്ലിപ്പ് കാണാവുന്നതാണ് തുടർന്ന് അത് മുറിഞ്ഞ് മറ്റൊരു പെട്ടിയിലേക്ക് വീഴും ഓരോ നിയമസഭ മണ്ഡലത്തിലേയും ഒരു പോളിങ് സ്റ്റേഷന്റെ സ്ലിപ്പുകൾ മാത്രം എണ്ണി നോക്കും കൂടുതൽ പോളിങ് സ്റ്റേഷനുകളിലെ സ്ലിപ്പുകൾ എണ്ണിനോക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടു ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിഗണിച്ചശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെട്ടുപ്പ് കമ്മീഷൻ സുനിൽ അറോറ അറിയിച്ചു

യും നടൻ വിജയകാന്ത് നയിക്കുന്ന ഡി എം

യും തമ്മിൽ തിരഞ്ഞെടുപ്പ് സഖ്യം നിലവിൽ വന്നു ഇന്നലെ വൈകിട്ട് ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ എ

യുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയും ഉപമുഖ്യമന്ത്രി ഒ പനിർശെൽവവും ഡി എം

അധ്യക്ഷൻ വിജയകാന്തും ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പു വച്ചു ദീർഘനാളത്തെ ചർച്ചകൾക്കും വിലപേശലിനും ശേഷമാണ് ഇരു കക്ഷികളും തമ്മിൽ തിരഞ്ഞെടുപ്പ് ധാരണയിലെത്തിയത്

പൊതു ചിഹ്നം അനുവദിച്ച തെരഞ്ഞെടുപ്പ് കമ്മിഷനു കമൽഹാസൻ ട്വിറ്ററിലൂടെ നന്ദി അറിയിച്ചു

ഏറ്റുമുട്ടൽ സ്ഥലത്തുനിന്നും യുദ്ധോപകരണങ്ങൾ ക ടുത്തു

മേഖലയിൽ ഇന്റർനെറ്റ് സേവനം നിൽത്തലാക്കി

ശ്രീധരനെ ജമ്മുകശ്മീരിലെ ര ് ആത്തീവേഗ ബൃഹത്ത് സഞ്ചാര മാർഗ്ഗ കമ്പനികളുടെ മുഖ്യ ഉപ്പൂദ്ദേശകനായി നിയമിക്കാൻ ഗവൺമെന്റ് അംഗീകാരം നൽകി ജമ്മുകശ്മീരിലെ ര തലസ്ഥാനങ്ങൾക്കുമായി ജമ്മു മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ശ്രീനഗർ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ എന്നിവ നിർമ്മിക്കാനുള്ള അനുമതി ഈയിടെയാണ് ഗവൺമെന്റ് നൽകിയത്

ആഡിസ് അബാബയിൽ നിന്ന് നെയ്റോബിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നത്

വിമാന ദുരന്തത്തിൽ പരിസ്ഥിതി മന്ത്രാലയ വിദഗ്ധോപദേശക ഉൾപ്പെടെ നാല് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ വിധ സഹായ സഹകരണങ്ങളും നല്കാൻ എത്യോപ്യയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണറോട് ശ്രീമതി സ്വരാജ് ട്വിറ്ററിൽ ആവശ്യപ്പെട്ടു

ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കു ചേരുന്നതായും ശ്രീ മോദി ട്വിറ്ററിൽ കുറിച്ചു

വിഖ്യാത പത്രപ്രവർത്തകൻ കുൽദീപ് നയ്യാർ പ്രശസ്ത നടൻ കാദർ ഖാൻ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി ലഭിച്ച പദ്മ പുരസ്ക്കാരങ്ങളും അകാലിദൾ നേതാവ് സുഖ്ദേവ് സിംഗ് ധിൻഷായ്ക്ക് ലഭിച്ച പദ്മഭൂഷൺ പുരസ്ക്കാരവും ഇതിൽ ഉൾപ്പെടും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും

വൈറ്റ് ഹൌസ് സാമ്പത്തിക ഉപദേശകൻ ലാറി കുഡ്ലോവ് ആണ് ഇക്കാര്യം അറിയിച്ചത്

ഇത് അനുവദിക്കാത്തത് അമേരിക്കയിൽ ഭരണപ്രതിസന്ധിക്ക് കാരണമായിരുന്നു

ഫത്താ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

ഓസ്ട്രേലിയയുടെ ചേസ് അനായസമാക്കിയ ആഷ്ടൺ ടേണറാണ് കളിയിലെ കേമൻ

ഈ വിജയത്തോടെ അഞ്ച് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിൽ ഇന്തൃയും ഓസ്ട്രേലിയയും ര മത്സരങ്ങൾ വീതം ജയിച്ച് തുല്യത നേടി ഇതോടെ ഡൽഹിയിൽ മറ്റന്നാൾ നടക്കുന്ന പരമ്പരയിലെ അവസാന മത്സരം നിർണ്ണായകമായി

ശ്രീകോവിലിന്റെ സ്വർണ്ം പൊതിഞ്ഞ പുതിയ വാതിൽ സമർപ്പണം ഇന്ന് നട തുറന്ന ശേഷം നടക്കും കോട്ടയം ഇളംപള്ളി ധർമ്മശാസ്താ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ച വാതിൽ സമർപ്പണ ഘോഷയാത്ര ശബരിമലയിൽ സമാപിച്ചു

ജെ

കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും നാല് ബി ജെ

സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ നയിച്ച പരിവർത്തൻ യാത്രയ്ക്ക് ഇന്നലെ സംസ്ഥാനത്ത് സമാപനമായി

ര ദിവസം വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്ന അദ്ദേഹം യുഡിഎഫിന്റെ തിരഞ്ഞെടുപ്പു പ്രചാരണം ഉദ്ഘാടനം ചെയ്യും

ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ ഇത് നീ ു നിൽക്കുമെന്നാണ് ഷിംലയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിലുള്ളത്

സ്വാകര്യ വൃക്തികളുടെ വസ്തുവിൽ പ്രചാരണ സാമഗ്രികള് സ്ഥാപിക്കുന്നതിന് സ്വകാര്യ വ്യക്തികളുടെ മുൻകൂർ സമ്മതപത്രം ആവശ്യമാണ് പൊതു സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്ററുകൾ ബാനറുകൾ ചുവരെഴുത്തുകൾ മുതലായ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ ഉടൻ തന്നെ നീക്കം ചെയ്യേ താണ്